അവസാന പാദത്തിൽ പരസ്യ പ്രചാരണം ഏപ്രിൽ നാലിന് വൈകിട്ട് ഏഴ് മണിക്ക് അവസാനിപ്പിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ

ഡി എ

നാളെ പാലക്കാട് എത്തും

എഫിനായി പ്രിയങ്കഗാന്ധി നാളെയെത്തും

എഫ് പ്രചാരണത്തിനും ദേശ്യീയ നേതാക്കൾ

തെരഞ്ഞെടുപ്പ് ക്മ്മീഷൻ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ അരിവിതരണം തുട്രാമെന്നും ഇത് പ്രചാരണ വിഷയം ആക്കരുതെന്നും ഹൈക്കോടതി

ഉത്തരവ് ഒരാൾ ഒന്നിലേറെ വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം

സീറ്റുകളിലേക്കുളള തെരഞ്ഞെടുപ്പ് തീയതി ഉടനെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

രോഗസ്ഥീരീകരണ നിരക്ക് നാല് ശതമാനത്തിലധികം

നാളെയും മറ്റന്നാളുമായി കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്

ഡി എ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് എത്തും

കൊല്ലം തിരുവനന്തപുരം എറണാകുളം തൃശൂർ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അവർ പങ്കെടുക്കും

ഡി എഫ് പ്രചാരണത്തിനായി സിപിഐ എം ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രക്യൂശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവർ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുക്യാണ്

സി പി നേതാവ് പ്രഫുൽ പട്ടേലും എൽ ഡി

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ണ്ണൂരിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിയത്

ഡി എക്കായി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷ്ടാഗിരിരാജ് സിംങ് ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ

ഒൻപത് മണ്ഡലങ്ങളിലായുള്ള നക്സലൈറ്റ് ബാധിത മേഖലകളിൽ വൈകിട്ട് ആറ് മണിക്കാണ് പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷം പൊതുയോഗങ്ങൾ പ്രകടനങ്ങൾ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള കലാപരിപാടികൾ തുടങ്ങിയവും മാധൃമങ്ങളിലുടെയുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങളും നടത്തരുത് ഇതു ലംഘിക്കുന്നവർക്ക് രണ്ട് വർഷം വരെ തടവും പിഴയും രണ്ടും കൂടിയോ ലഭിക്കും ഈ കാലയളവിൽ അച്ചടി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാനുദ്ദേശിക്കുന്ന രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നേടണമെന്നും മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള തപാൽ വോട്ടിങ്ങും തുടങ്ങി

പോലീസ് ഫയർഫോഴ്സ് ഹോം ഗാർഡ് ഉൾപ്പെടെയുള്ളവരാണ് വോട്ട് ചെയ്യുന്നത്

ജില്ലകളിലൂടെ

തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി വാർത്താ വിഭാഗം മേധാവി മയൂഷ എ

നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എന്നിവയാണ് തിരുവനന്തപുരം ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ

ഡിഎഫിന് വേണ്ടി വി ശിവൻകുട്ടിയും എൻഡിഎയ്ക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും യു

ഡി

എഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനും എൻ

സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും യു

സ്ഥാനാർത്ഥി എസ്

ലാലും മുഖമുഖം വന്നപ്പോൾ പോരാട്ടത്തിന് വാശിയേറി ഉപ്പതെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി

ഡി എഫ്

പ്രശാന്ത് യു

എഫ്

സ്ഥാനാർത്ഥി വി

ഇടതുവലത് മുന്നണികൾക്ക് വളക്കൂറുള്ളമണ്ണാണ് തിരുവനന്തപുരം എങ്കിലും ബി ജെ

ഇതര ജില്ലകളിൽ നിന്ന് വന്ന വിവിധ ജനവിഭാഗങ്ങൾ ചേക്കേറിയ മണ്ണാണ് തിരുവനന്തപുരം നഗരത്തിന്റേത് എന്നതിനാൽ പ്രവചാനാതീതമാണ് ഇവിടത്തെ രാഷ്ട്രീയം അതിനാൽ അനന്തപുരിയുടെ മനസിൽ എന്തെന്നറിയാൻ മെയ് രണ്ട് വരെ കാത്തിരിക്കാം

സർക്കാരിന് അരിവിതരണം തുടരാമെന്നും എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയം ആക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു് അരിവിതരണം തടഞ്ഞ കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ

ഇതിനാവശ്യമായ എന്ത് നടപടി സ്വീകരിക്കാനാവുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ കോടതിയെ അറിയിക്കണം പൌരന്മാരുടെ അവകാശം സംബന്ധിച്ചു ഗൌരവമുള്ള ഒരു വിഷയമാണിതെന്ന് പറഞ്ഞ ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും

എ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും

ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവം ഓരോ ദിവസവും കൂടി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂരിലും തലശ്ശേരിയിലും യു ഡി

കേരളത്തിന്റെ പുരോഗതി അട്ടിമറിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ യു

എഫും ബി ജെ

യും തമ്മിൽ ധാരണ വേണമെന്ന തീരുമാനപ്പുന്നേരത്തെ എടുത്തിട്ടുണ്ടെന്നും ശ്രീ

മുരളീധരൻ ലൌ ജിഹാദ് സംബന്ധിച്ച് ജോസ് കെ മാണി പ്രകടിപ്പിച്ചത് ക്രൈസ്തവ സമൂഹത്തിഏറ്റ് ആശങ്കയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി

ഇരു മൂന്നണികളെയും മുസ്തീം ലീഗിന്റെ സ്വാധീനം ബാധിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു

സി

സിയും ക്രൈസ്തവ സമൂഹവും ഉയർത്തിയ ആശങ്ക തന്നെയാണ് ജോസ് കെ മാണി പങ്ക് വെച്ചത്

ജുഡീഷൃറിയുടെ അന്തസ്സ് ഉയർത്തിപിടിക്കുന്നതാണ് വിധിയെന്നും അദ്ദേഹം പറഞ്ഞു

എസ് ആർ ടി

തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്ക് ഉപകാരപ്രദമാകുന്ന വിധം സ്റ്റോപ്പുകൾ ഉറപ്പു വരുത്താനും നിർദേശം നൽകിയിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് മാറ്റി വച്ച നടപടി ചട്ടവിരുദ്ധമാണെന്നു കാണിച്ചു സിപിഎമ്മിനു വേണ്ടി എസ് ശർമയും സ്പ്രീക്കർക്കായി നിയമസഭാ സെക്രട്ടറിയും സമർപ്പിച്ച ഏർജ്ജ് കോടതി പരിഗണിക്കവെയാണ് തെരഞ്ഞെടുപ്പു ക്രമ്മിഷൻ ഇക്കാര്യം അറിയിച്ചത്

പത്തനംതിട്ടു പ്ന്തളം അടൂർ തിരുവല്ല തുടങ്ങിയ ഇടങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കോവിഡ് കേസുകൾ കൂടുതലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം മാസ്ക് മുഖത്തു നിന്ന് താഴ്ത്തി ആരെയും അഭിമുഖീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നും ഡി

ആവശ്യപ്പെട്ടു

സി അടുത്ത മാസം എട്ടിന് ആരംഭിക്കുന്ന എസ് എസ് എൽ

ഐ മേഖലാ ഓഫീസർ എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇതിനുള്ള നിർദേശം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു

വൈകിട്ട് ശ്രീകോവിലിൽ ദീപാരാധനയ്ക്കു ശേഷം ഗരുഡവാഹനത്തിൽ വിഗ്രഹങ്ങൾ പുറത്തെഴുന്നള്ളിച്ചതോടെയാണ് ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്

ആരോഗൃസ്ഥിതി മോശമായതിനെ തുടർന്ന് തുടർന്ന് രണ്ട് വർഷത്തോളമായി ചികിത്സയിലായിരുന്നു

ശാന്ത്സ്പഭാവക്കാരനായ വലിയ കേശവൻ ദേവസ്വത്തിലെ തലയെടു്പ്പുള്ള ആനകളിൽ മുൻനിരയിലായിരുന്നു

ദുഖവെള്ളി ആചരിക്കുന്ന ഈ വെള്ളിയാഴ്ചയും ഓഹരി വിപണികൾക്ക് അവധി ആയിരിക്കും

ആദ്യമായാണ് ഒരു കേരള ടീം ഐ ലീഗ് ചാമ്പ്യൻമാരായത്

ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഫെൻസിംഗ് പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഉൾനാടൻ ജലഗതാഗത വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത്